പ്രചാരണച്ചൂട് പരമാവധിയിൽ

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി

ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒൻപത് ദിവസം മാത്രം മുന്നണികളും സ്ഥാനാർത്ഥികളും ഉൌർജ്ജിത പ്രചാരണവുമായി രംഗത്തുണ്ട് ദേശീയ നേതാക്കളുടെ വരവോടെ പ്രചാരണം പരമാവധി ചൂട് പിടിച്ച് കഴിഞ്ഞു

ഡി എ യ്ക്കുവേണ്ടി ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും സ്മൃതി ഇറാനിയും വിവിധ മണ്ഡലങ്ങളിൽ പ്രസംഗിച്ചു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രചാരണത്തിന് ഇന്ന് തിരുവനന്തപുരത്തെത്തും

ആലപ്പുഴ ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദകാരാട്ടും ഇടതുമുന്നണിയ്ക്കായി സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്

സി പി നേതാവ് പ്രഫുൽ പട്ടേലും പ്രചാരണത്തിനെത്തി പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ ഇന്ന് കോഴിക്കോട്ടെത്തും

ഡി എഫിനായി എ ഐ സിസി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും മധു ഗൌഡ് യാഷ് കി എന്നിവരാണ് രംഗത്ത് ഇരുവരും കൊച്ചിയിലെയും കണ്ണൂരിലെയും പ്രചാരണം തുടരുകയാണ് പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി നാളെ തിരുവനന്തപുരം ആലപ്പുഴകൊല്ലം ജില്ലകളിൽ പ്രചാരണ പര്യടനം നടത്തും

രാജ്യത്തെ ഇന്ധനവില വർധന നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾ നികുതി കുറയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാനാണ് ഫെഡറൽ സംവിധാനത്തെ സംസ്ഥാനം വെല്ലുവിളിക്കുകയാണെന്നും ഭരണഘടനാ ലംഘന തീരുമാനം ദൌർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വാക്പോര് നടത്തുന്ന എൽ ഡി എഫും യു ഡി എഫും ബംഗാളിൽ കൂട്ട്ചേർന്നിരിക്കുകയാണ് ഇവർ സൌഹ്യദ മത്സരത്തിലൂടെ ജനതയെ കേരള പരാജയപ്പെടുത്തുകയാണെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി ഏഴ് പതിറ്റാണ്ട് മാറിമാറി ഭരിച്ചിട്ടും സമ്പൂർണ സാക്ഷരത ഉണ്ടായിട്ടും കേരളം എന്തുകൊണ്ട് പിറകിൽ നിൽക്കുന്നുവെന്ന് ഇരു മുന്നണികളും വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു രുര ഇന്ത്യയിൽ അതിവേഗം കോവിഡ് വാക്സിൻ നിർമ്മിക്കാനും മറ്റ് രാജ്യങ്ങൾക്ക് നൽകാനും സാധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു തൃശൂർ ഇരിങ്ങാലക്കുടയിൽ എൻ

എ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെ ടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ വിശ്വാസികളുടെ താൽപ്പര്യത്തിനനുസൃതമായി ശബരിമല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ നിയമ നിർമ്മാണം നടത്തുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു

ഡി എ യുടെ പ്രചാരണത്തിനായി ഇന്നലെ കോഴിക്കോട്ടെത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എലത്തൂർ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി ഒട്ടേറെ പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു

സി പി ദേശീയ പ്രസിഡണ്ട് ശരത് പവാർ ഉച്ചയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോഴിക്കോട്ടെത്തും വൈകിട്ട് എലത്തൂരിലെ എൽ ഡി എഫ് പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് കോട്ടയ്ക്കൽ മണ്ഡലത്തിലും പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കുചേരും നാളെ കുട്ടനാട് മണ്ഡലത്തിലും ശരത് പവാർ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പദയാത്ര രാവിലെ തണ്ണീർപന്തലിൽ കെ

സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് സമാപന യോഗത്തിൽ എ ഐ

സി ജനറൽ സെക്രട്ടറി കെ

രുര സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ഒരു കേന്ദ്ര ഏജൻസിക്കും കേസുകളിൽ ഇടപെടാനാവില്ലെന്ന് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ഇതിന് വിരുദ്ധമായി കേന്ദ്രവും അന്വേഷണ ഏജൻസികളും എടുത്ത നടപടികൾ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുത്ത സംസ്ഥാന ഗവൺമെന്റ് നടപടിയ്ക്കെതിരെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പരാമർശത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം തേടുമെന്നും യെച്ചൂരി പറഞ്ഞു രുര വികസന മുന്നേറ്റ തുടർച്ചയ്ക്ക് എൽ ഡി എഫ് ഭരണം വീണ്ടും വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മികവുറ്റ സംസ്ഥാനമെന്ന ഖ്യാതിയിലേക്ക് കേരളം വളർന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു രുഭ മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫിന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും

ഡി എഫിന് ഭരണത്തുടർച്ച ലഭിക്കുന്നത് രാജ്യത്തിന്റെ ബദൽ നയങ്ങൾക്ക് ശക്തിപകരുമെന്ന് എ

സി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അമർജിത് കൌർ പറഞ്ഞു

ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

സി യുമായി ആഴക്കടൽ മീൻപിടിത്ത കരാർ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ആവശ്യപ്പെട്ടു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്താനെടുത്ത തീരുമാനം നിയമ വിരുദ്ധമാണെന്നും അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും ഹസ്സൻ പറഞ്ഞു രും മുസ്ലിംലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കണ്ണൂർ വളപട്ടണത്തും സിറ്റിയിലും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും രുര കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഇന്ന് കണ്ണൂരിലെത്തും ഉച്ചയ്ക്ക് പള്ളിക്കുന്നിൽ എൻ ഡി

പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും

ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിന് നേത്വത്വം നൽകി വരുന്നു ആകാശവാണിയ്ക്ക് വേണ്ടി കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് മാർട്ടിൻ

എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ട രാമനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ച് വിളിച്ചു ക്രിമിനൽ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിക്കാൻ പാടില്ലെന്ന ചട്ടം മറികടന്നാണ് ശ്രീറാമിനെ തമിഴ്നാട്ടിൽ നിരീക്ഷകനായി നിയമിച്ചത്

സാമൂഹ്യ സൌഹാർദത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ഉത്സവമാണ് ഹോളി എന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

രംഭ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയും ഇന്ത്യയ്ക്ക് ഇന്നലെ പൂനെയിലെ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്

രും തൃശൂർ പൂരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സാധാരണ പോലെ നടത്താമെന്ന് ജില്ലാ കലക്ടർ എസ് ഷാനവാസ് അറിയിച്ചു

ജനങ്ങളെ നിയന്ത്രിക്കുന്നതുൾപ്പെടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതടക്കം കാര്യങ്ങളുടെ ഉത്തരവാദിത്വം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഏറ്റെടുക്കാൻ ധാരണയായിട്ടുണ്ട് പൂരം എക്സിബിഷനും സാധാരണ പോലെ നടത്താം രുദ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴിഞ്ഞവർഷം മാറ്റിവെച്ച ഉത്സവത്തിന് കൊടിയേറി കോവിഡ് സാഹചര്യത്തിൽ അന്നദാനവും കലാപരിപാടികളും ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായാണ് ഉത്സവാഘോഷം

കരുനാഗപ്പള്ളി സ്വദേശികളായ ശ്രീജിത്ത് അനീഷ് സജാദ് എന്നിവരാണ് മരിച്ചത് വീയപുരം തടി ഡിപ്പോയ്ക്കടുത്ത് കടവിൽ കുളിക്കാനിറങ്ങിയ അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി രും കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര അയ്മനം മേഖലയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ വേനൽ മഴയിലും കാറ്റിലും വൻ നാശനഷ്ടമുണ്ടായി